അവശ്യ സർവീസുകളൊഴികെ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റ് ഓഫീസുകൾ പ്രവർത്തിക്കില്ല

ന്യൂഡൽഹിയിൽ രാജ്യത്തെ കോവിഡ് അനുബന്ധ സാഹചര്യങ്ങളെ കുറിച്ച് കേന്ദ്രമന്ത്രിമാരും ഉന്നത ഉദ്യോഗസ്ഥരും പങ്കെടുത്ത യോഗത്തിൽ സമഗ്ര അവലോകനം നടത്തുകയായിരുന്നു പ്രധാനമന്ത്രി വിശദാംശങ്ങളുമായി ഹബീബ് റഹ്മാൻ ദേദ വിവിധ സംസ്ഥാനങ്ങളിലും ജില്ലകളിലും കോവിഡ് വ്യാപിക്കുന്നതിനെക്കുറിച്ച് വിശദമായ ചിത്രം ഉദ്യോഗസ്ഥർ പ്രധാനമന്ത്രിക്ക് നൽകി

സംസ്ഥാനങ്ങളിലെ ആരോഗ്യ അടിസ്ഥാന സൌകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് സഹായവും മാർഗനിർദ്ദേശവും നൽകണമെന്ന് പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു മരുന്നുകളുടെ ലഭ്യതയും വാക്സിനേഷന്റെ പുരോഗതിയും അടുത്ത മാസങ്ങളിൽ വാക്സിനുകളുടെ ഉത്പാദനം വർദ്ധിപ്പിക്കുന്നതിന് മാർഗരേഖയും പ്രധാനമന്ത്രി വിലയിരുത്തി ലോക്ഡൌൺ ഉണ്ടെങ്കിലും ജനങ്ങൾക്ക് വാക്സിനേഷൻ സൌകര്യം ഒരുക്കണമെന്നും വാക്സിനേഷനിൽ ഏർപ്പെട്ടിരിക്കുന്ന ആരോഗ്യ പ്രവർത്തകരെ മറ്റ് ചുമതലകൾ ഏൽപ്പിക്കരുതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു കേന്ദ്രമന്ത്രിമാരായ രാജ്നാഥ് സിംഗ് അമിത്ഷാ നിർമ്മല സീതാരാമൻ ഡോക്ടർ ഹർഷ് വർധൻ പിയൂഷ് ഗോയൽ മൻസുഖ് മണ്ഡാവിയ തുടങ്ങിയവരും ഉന്നത ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ആകാശവാണി ദ്ദേ അതിശക്തമായി തുടരുന്ന കൊവിഡ് വ്യാപനം നിയന്ത്രണ വിധേയമാക്കാൻ വേണ്ടിയാണ് ലോക്ഡൌൺ പ്രഖ്യാപിച്ചതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു അവശ്യസാധനങ്ങളും അവശ്യസേവനങ്ങളും ലോക്ഡൌൺ വേളയിലും എല്ലാവർക്കും ലഭിക്കാൻ വേണ്ട സംവിധാനങ്ങൾ ഒരുക്കുമെന്ന് അദ്ദേഹം ഫെയ്സ്ബുക്ക് പോസ്റ്റിൽ അറിയിച്ചു ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കുക എന്നതല്ല ലോക്ഡൌണിന്റെ ലക്ഷ്യമെന്നും കോവിഡ് രോഗവ്യാപനം തടഞ്ഞ് എല്ലാവരെയും സുരക്ഷിതരാക്കുന്നതിനാണ് നടപടിയെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി

ദ്ദേ സംസ്ഥാനത്ത് നാളെ മുതൽ സമ്പൂർണ ലോക്ക്ഡൌൺ ഏർപ്പെടുത്തുന്ന സാഹചര്യത്തിൽ അവശ്യസർവീസുകൾ ഒഴികെ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റ് ഓഫീസുകൾക്ക് അവധിയായിരിക്കും

ആശുപത്രികൾക്കും ആരോഗ്യ മേഖലയിലെ വിവിധ സ്ഥാപനങ്ങൾക്കും കൃഷി ഹോർട്ടികൾച്ചർ ഫിഷറീസ് മൃഗസംരക്ഷണം റേഷൻ കടകൾ പാൽ പച്ചക്കറി പലചരക്ക് തുടങ്ങി അവശ്യ സാധന കടകൾ മത്സ്യം ഇറച്ചി വിൽപന കേന്ദ്രങ്ങൾ ബേക്കറികൾ തുടങ്ങിയവയ്ക്ക് പ്രവർത്തിക്കാം

ബാങ്ക് ഇൻഷുറൻസ് പണമിടപാടു സ്ഥാപനങ്ങൾക്ക് രാവിലെ പത്തു മുതൽ ഒരു മണി വരെ ഇടപാടുകൾ നടത്താം പെട്രോൾ പമ്പുകൾ ഗ്യാസ് ഏജൻസികൾ കേബിൾ സർവീസ് ഡി ടി

റോഡ് ജലഗതാഗത സർവീസുകൾ ഉണ്ടാവില്ല മെട്രോ ട്രെയിനും സർവീസ് നടത്തില്ല ചരക്ക് നീക്കത്തിന് തടസമുണ്ടാവില്ല എല്ലാവിദ്യാഭ്യാസ കോച്ചിംഗ് പരിശീലന ഗവേഷണ സ്ഥാപനങ്ങളും അടയ്ക്കണം ന്യൂസ് ഡസ്ക് ആകാശവാണി ദേദ സംസ്ഥാനത്ത് കോവിഡ് വ്യാപനം അതിരൂക്ഷമായി തുടരുന്നു തുടർച്ചയായി രണ്ടാംദിവസവും നാല്പതിനായിരത്തിലേറെ പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്

എറണാകുളം ജില്ലയിൽ രോഗബാധ തീവ്രമാണ്

സംസ്ഥാനത്ത് കോവിഡ് മരണവും വർദ്ധിച്ചു

ദേദ കോവിഡ് രോഗികളുടെ വർദ്ധന പരിഗണിച്ച് കോഴിക്കോട് ജില്ലയിൽ മുഴുവൻ രോഗികൾക്കും ചികിത്സ ഉറപ്പാക്കാൻ നടപടി സ്വീകരിച്ചതായി ജില്ലാ കലക്ടർ സാംബശിവ റാവു അറിയിച്ചു ഗവൺമെന്റ് സ്വകാര്യ മേഖലകളിലെ പരമാവധി ശേഷി ഉപയോഗപ്പെടുത്താതെ തന്നെ നിലവിലെ സാഹചര്യം നേരിടാൻ ചികിത്സാ സംവിധാനം ഉറപ്പാക്കിയിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു

ദേദ എറണാകുളം ജില്ലയിൽ ലോക്ഡൌൺ കാലത്ത് അതിഥി തൊഴിലാളികളുടെ സംരക്ഷണം ഉറപ്പാക്കുന്നതിന് എല്ലാ നടപടികളും സ്വീകരിക്കാൻ ജില്ലാ കളക്ടർ എസ്

ദേദ കോവിഡ് ചികിത്സയ്ക്ക് കൊല്ലം ജില്ലയിൽ ആവശ്യത്തിനു സൌകര്യങ്ങൾ ഉണ്ടെന്നും ആശങ്ക വേണ്ടെന്നും ജില്ലാ കലക്ടർ ബി

ആവശ്യാനുസരണം കൂടുതൽ സൌകര്യങ്ങൾ ഒരുക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു ദേദ പത്തനംതിട്ട ജില്ലയിൽ കോവിഡ് പ്രതിദിന കേസുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ കുടുംബാംഗങ്ങളിലേക്ക് രോഗവ്യാപനം ഉണ്ടാകാതെ എല്ലാവരും സൂക്ഷിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എ

ജില്ലയിൽ ദിവസവും പത്ത് മരണം വരെയുണ്ട്

ഒരാൾക്ക് രോഗബാധയുണ്ടായാൽ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളിലേക്കും രോഗവ്യാപനം ഉണ്ടാകുന്നതായും ഡി

ദ്ദേ ഇടുക്കി ജില്ലയിൽ ദിവസേന കോവിഡ് രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്ന ഇടവെട്ടി ആലക്കോട് പഞ്ചായത്തുകളിൽ ഡൊമിസിലറി കോവിഡ് കെയർ സെന്ററുകൾ തുറന്നു പ്രത്യക്ഷ രോഗലക്ഷണങ്ങളും കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളും ഇല്ലാത്തതും വീടുകളിൽ ഐസൊലേഷനിൽ കഴിയാൻ വേണ്ടത്ര സൌകര്യമില്ലാത്തതുമായ രോഗികളെയാണ് സെന്ററുകളിലേക്ക് മാറ്റുക

ദ്ദേ രാജ്യത്തെ കോവിഡ് സാഹചര്യം വിലയിരുത്താൻ കോൺഗ്രസ് അധ്യക്ഷ സോണിയഗാന്ധി വിളിച്ച പാർട്ടി എം പിമാരുടെ യോഗം ഇന്ന് രാവിലെ ഓൺലൈൻ വഴിയാണ് യോഗം ചേരുക

കെ അധ്യക്ഷൻ എം കെ സ്റ്റാലിന്റെ നേതൃത്വത്തിൽ പുതിയ മന്ത്രിസഭ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും രാവിലെ ഒൻപതിന് രാജ്ഭവനിൽ നടക്കുന്ന ലളിതമായ ചടങ്ങിൽ ഗവർണർ ബൻവാരിലാൽ പുരോഹിത് പുതിയ മന്ത്രിമാർക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കും

ദേദ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജയം ആഘോഷിക്കാൻ എൽഡിഎഫിന്റെ വിജയദിനം ഇന്ന്

വൈകീട്ട് ഏഴിന് ദീപം തെളിയിക്കും പൂത്തിരിയും മൺചെരാതുകളും കത്തിച്ച് മധുരം പങ്കിട്ട് വീടകങ്ങളിൽ വിജയാഘോഷം നടത്താനാണ് മുന്നണിയുടെ ആഹ്വാനം ദേദ സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് പരാജയം ചർച്ചെചെയ്യാൻ കെ

ഇന്നലെ ഉച്ചയ്ക്കാണ് മംഗലാപുരത്ത് നിന്ന് വരികയായിരുന്ന ടാങ്കർലോറി ചാല ജംഗ്ഷനിൽ മറിഞ്ഞത് ചേളാരിയിൽ നിന്നെത്തിയ ഐ

സംഘത്തിന്റെ നേതൃത്വത്തിലാണ് വാതകം മറ്റൊരു ടാങ്കറിലേക്ക് മാറ്റുന്നത് കണ്ണൂരിൽ നിന്ന് കോഴിക്കോട് തലശ്ശേരി കൂത്തുപറമ്പ് ഭാഗങ്ങളിലേക്ക് പോകുന്ന വാഹനങ്ങൾ വഴിതിരിച്ചു വിട്ടിരിക്കുകയാണ്

ദേദ ജലജീവൻ മിഷന്റെ ആഭിമുഖ്യത്തിൽ നടപ്പാക്കുന്ന കുടിവെള്ള പദ്ധതികൾ അടിയന്തര പ്രാധാന്യത്തോടെ പൂർത്തീകരിച്ച് എല്ലായിടത്തും ശുദ്ധജലം എത്തിക്കണമെന്ന് കൊല്ലം ജില്ലാ കലക്ടർ ബി

ജില്ലയിലെ വിവിധ കുടിവെള്ള പദ്ധതികളുടെ പുരോഗതി വിലയിരുത്താൻ ചേർന്ന ഗൂഗിൾ യോഗത്തിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമായി അനുഭവപ്പെടുന്ന പഞ്ചായത്തുകളിൽ കോവിഡ് മാനദണ്ഡം പാലിച്ച് പദ്ധതി നിർവഹണം സമയബന്ധിതമായി നിർവഹിക്കണമെന്നും കലക്ടർ ആവശ്യപ്പെട്ടു അടുത്ത വർഷം മൂന്ന് ലക്ഷത്തോളം കണക്ഷനുകൾ നൽകാനാകും വിധം പ്രവർത്തിക്കണം എന്നും കലക്ടർ പറഞ്ഞു

അദീല അബ്ദുള്ളയുടെ സാന്നിധ്യത്തിൽ ചേർന്ന ജലജീവൻ മിഷൻ യോഗം അംഗീകാരം നൽകി